ഡി എ യുടെ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം കെ

സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്ര ഉച്ചകഴിഞ്ഞ് കാർസർഗോഡ് പെർളയിൽ നിന്ന്

ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ന് അറസ്റ്റിലായ തൃപ്പൂണിത്തുറ സ്വദേശിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി

ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി

പോരാട്ടം

എ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു ആചാര അനിഷ്ടാനങ്ങളിൽ വെള്ളം ചേർക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കർണ്ണാടക മുൻ മുഖ്യമന്ത്രിയും സംസ്ഥാന ബി ജെ പി അദ്ധ്യക്ഷനുമായ ബി

ഡി എ യുടെ ശബരിമല സംരക്ഷണയാത്ര കാസർഗോഡ് ഗണപതിക്ഷേത്ര പരിസരത്ത് മധൂർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ പുനപരിശോധനാ ഹർജി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ പി

ശ്രീധരൻപിള്ളയും എൻ ഡിഎ ്കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്നാണ് ഉഥ്യാത്ര നയിക്കുന്നത്

സി വിശ്വാസം സംരക്ഷിക്കണമെന്നും വർഗ്ഗീയതയെ തുരത്തണമെന്നും ആവശ്യപ്പെട്ട് കെ

സി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

സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാസർഗോഡ് പെർലയിൽ വൈകിട്ട് മുൻ കെ

സി സി അദ്ധ്യക്ഷൻ എം

ഹസ്സൻ ഉദ്ഘാടനം ചെയ്യും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

്രാമവർമ്മ രാജ പന്തളത്ത് പറഞ്ഞു അയ്യപ്പ ജോതിരഥയാത്രി സമാപന ദിവസം പന്തളം കൊട്ടാരത്തിലെ ക്കൈപ്പുഴ ദേവീക്ഷേത്രത്തിൽ അയ്യപ്പ മഹായജ്ഞം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ആക്രമണവുമായി ബന്ധപ്പെട്ടു ശബരിമല ഹൈക്കോടതിയിലെത്തിയ ആദ്യ ജാമ്യാപേക്ഷയാണ് ഇത്

വൈ എസ് പി യുടെ അറസ്റ്റ് വൈകിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനുമാണു അന്വേഷണം ക്രൈബ്രാഞ്ചിനു വിട്ടതിനു പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാധാരണ പ്രതിയേ കുറിച്ച് ധാരണയില്ലാതെ തെളിയിക്കാൻ സാധിക്കാതെ കേസ് നീണ്ടുപോകുമ്പോഴാണു കേസ് മറ്റ്ഏജൻസിക്ക് കൈമാറുന്നത് ഇവിടെ പ്രതി ഡി വൈ എസ് പി ആണെന്ന കാര്യം വ്യക്തമാണു ഇനി അറസ്റ്റ് മാത്രമാണു നടക്കാനുള്ളത് ഇത് ഒഴിവാക്കാനും നാടപടികൾ വൈകിപ്പിച്ച് പ്രതിയെ രക്ഷിക്കാനുമുള്ള കള്ളകളിയാണു ഇപ്പോൾ നടക്കുന്നത് പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ട് പോകുന്നുതീനൂ പകരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോയി ചിക്രിത്സ് വൈകിപ്പിച്ച സംഭവം അന്വേഷിക്കണമെന്നു പ്രതിപക്ഷി നേ്താവ് ആവശ്യപ്പെട്ടു

നെയ്യാറ്റിൻകര പൊലീസ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് കുമാർ ഷിബു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി എടുത്തത്

അരുൺ ജയ്റ്റ്ലി സമ്പദ്ഘടന ശക്തിപ്പെടുത്താനുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു കറൻസി അസാധുവാക്കിയനടപടിയെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജയ്റ്റ്ലി

രാജ്യത്തിനു പുറത്ത് നീക്ഷേ്പിച്ചിട്ടുള്ള കള്ളപ്പണം പുറത്തുകൊണ്ടു വരികയായിരുന്നു കറൻസി അസാധുവാക്കിയ നടപടിയിലൂടെ ഗവൺമെന്റ് പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് അരുൺ ജയ്റ്റ്ലി പറഞ്ഞു

ചെങ്ങന്നൂർ മുളക്കുഴ കിരൺ കൃഷ്ണ മാവേലിക്കര നടപ്പാറയിൽ ശങ്കർകുമാർ എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് മിനിലോറിയുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു ഇരുവർക്കും ശരീരത്തിൽ പൊള്ളലേറ്റിരുന്നു കോയമ്പത്തൂർ കർപ്പകം എഞ്ചിനീയറിങ് കോളേജിലെ വിദ്യാർഥികളാണിവർ ദേശീയപാതയിലെ നങ്ങ്യാർകുളങ്ങര ബാർഹോട്ടലിന് സമീപം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് വരും വഴിയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്

കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലി മുത്ത്

രാത്രി ഏഴരയ്ക്ക് പത്തോർഥാ സ്റ്റേഡിയത്തിലാണ് മൽസരം

ശാസ്ത്ര മേള ഗണിത ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള സാമൂഹ്യ ശാസ്ത്രമേള എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും